ചട്ടങ്ങൾ പാലിച്ചുകൊണ്ടാണ് ട്രാൻസ് ഗ്രിഡ് പദ്ധതിയെന്ന് മന്ത്രി എം എം മണ്ണി

അട്ടപ്പാടിയിൽ സുരിക്ഷ്മാ സേനയുമായുണ്ടായ ഏറ്റുമുട്ടലിൽ ഒരു മാവോയിസ്റ്റ് നേതാവ് കൂടി കൊല്ലപ്പെട്ടു മേഖലയിൽ പോലീസ് സുരക്ഷ ശക്തമാക്കി

ഡി

തിരുവനന്തപുരം കൊല്ലം ജില്ലകളിൽ ഇന്ന് അതിശക്തമായ മഴയ്ക്ക് സാധൃത ആലപ്പുഴ എറണാകുളം ഇടുക്കി ജില്ലകളിൽ നാളെ ഓറഞ്ച് അലർട്ട്

മലപ്പുറം താനൂരിലെ മുസ്ലീം ലീഗ് പ്രവർത്തകന്റെ കൊലപാതകം ്സംബന്ധിച്ച പോലീസ് അന്വേഷണം കാര്യക്ഷമമായി നടക്കുന്നില്ലെന്നും ഇത് സഭ നിർത്തിവച്ച് ചർച്ച ചെയ്യണമെന്നും ആവശ്യപ്പെട്ട് പ്രതിപക്ഷം നിയമസഭയിൽ അടിയന്തരപ്രമേയത്തിന് നോട്ടീസ് നൽകി പ്രതിപക്ഷ ഉപനേതാവ് എം

മുനീർ ആണ് അടിയന്തരപ്രമേയ നോട്ടീസ് നൽകിയത് എന്നാൽ സംഭവം അന്ത്യന്തം നിർഭാഗ്യകരമാണെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു ഇത്തരത്തിലുള്ള സംഭവങ്ങളെ ഗവൺമെന്റ് ഒരു വിധത്തിലും പ്രോത്സാഹിപ്പിക്കുന്നില്ല എന്നും പോലീസ് അന്വേഷണം ശരിയായ ദിശയിൽ തന്നെയാണ് നടക്കുന്നതെന്നും പ്രതികളെ ഉടൻ പിടികൂടുമെന്നും മുഖ്യമന്ത്രി അറിയിച്ചു

ഇതിൽ പ്രതിഷേധിച്ച് പ്രതിപക്ഷം ബഹളം ത്യൂട്ട്ർന്നതിനാൽ നടപടികൾ വേഗത്തിൽ പൂർത്തിയാക്കി സഭ ഇന്നത്തേയ്ക്ക് പിരിയുന്നതായി സ്പീക്കർ അറിയിച്ചു

പ്രതിപക്ഷം അവതരിപ്പിച്ചു അടിയന്തര പ്രമേയത്തിന്റെ ചർച്ചയിൽ പങ്കെടുക്കുകയായിരുന്നു പ്രതിപക്ഷ നേതാവ് അക്രമ രാഷ്ട്രീയത്തിന്റെ കാര്യത്തിൽ ആത്മാർത്ഥത ഇല്ലാതെയാണ് മുഖ്യമന്ത്രിയുടെ പ്രസ്താവനയെന്നും പ്രതിപക്ഷനേതാവ് പറഞ്ഞു നിയമസഭ എം എം മണി മത്സരാധിഷ്ഠിത ടെണ്ടറുകളിൽ സംസ്ഥാന ഗവൺമെന്റ് നിഷ്കർഷിച്ചിട്ടുള്ള നിയമങ്ങൾ പാലിച്ചുകൊണ്ടാണ് ട്രാൻസ്ഗ്രിഡ്റ് പദ്ധതിയുടെ ടെണ്ടർ നടപടികൾ പൂർത്തിയാക്കിയതെന്ന് മന്ത്രി എം എം മണി വൈദ്യുതി ബോർഡിന്റെ എല്ലാ വരവ് ചെലവ് കണക്കുകളും സിഎജി ഓഡിറ്റിംഗിന് വിധേയമാണെന്നും മന്ത്രി നിയമസഭയെ അറിയിച്ചു

പ്രസരണ നഷ്ടമില്ലാതെ വൈദ്യുതി ലഭ്യമാക്കാൻ ട്രാൻസ്ഗ്രിഡ് പദ്ധതിയിലൂടെ സാധിക്കുമെന്നും മന്ത്രി അറിയിച്ചു ടൂറിസം കടകംപള്ളി ടൂറിസം മേഖലയിൽ സാധാരണക്കാരായ സ്ത്രീകൾക്ക് തൊഴിലും വരുമാനവും ലഭ്യമാക്കുകതിനായി സംസ്ഥാന ടൂറിസം മിഷന് കീഴിൽ നിരവധി പദ്ധതികൾ ആരംഭിച്ചതായി മന്ത്രി കടകംപള്ളി സുരേന്ദ്രൻ നിയമസഭയിൽ അറിയിച്ചു ഇതിനായി പേപ്പർ ബാഗുകൾ തുണിസഞ്ചികൾ വിവിധ തരത്തിലുള്ള കരകൌശല വസ്തുക്കൾ മുള ഈറ എന്നിവ കൊണ്ടുള്ള ഉൽപ്പന്നങ്ങൾ നിർമ്മിക്കുന്നതിന് പരിശീലനം നൽകുന്നുണ്ടെന്നും മന്ത്രി അറിയിച്ചു

ഭിന്നശേഷിയുള്ളവർക്ക് പ്രത്യേക ടൂറിസം പാക്കേജ് ആവിഷ്കരിക്കുമെന്നും മന്ത്രി നിയമസഭൂയിൽ പറഞ്ഞു

ജെ മാക്സിയുടെ ചോദ്യത്തിന് മറുപടി യായി ധനമന്ത്രി അറിയിച്ചു

കേസിന്റെ അന്വേഷണത്തിലും നടത്തിപ്പിലും ഗുരുതരമായ വീഴ്ച്ച സംഭവിച്ചിട്ടുണ്ടെന്ന് കമ്മീഷൻ ഉപാധ്യക്ഷൻ എൽ

വിധിപ്പകർപ്പ് കിട്ടിയതിന് ശേഷമാ്യിരിക്കും തുടർ നടപടിയെന്നും ഉദ്യോഗസ്ഥർക്ക് വീഴ്ച പറ്റിയിട്ടുണ്ടെങ്കിൽ അത് പരിശോധിക്കുമെന്നും ഡിജിപി വ്യക്തമാക്കി

കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി പാലക്കാട് പ്രതിനിധി ഫൈസൽ അലിമുത്ത്

സംസ്ഥാന മന്ത്രിസഭ കൈക്കൊണ്ട തീരുമാനം അനുസരിച്ചാണ് നടപടി

യൂണിവേഴ്സിറ്റി കോളെജ് വധശ്രമക്കേസിലും പരീക്ഷ ക്രമക്കേട് കേസിലും പൊലീസ് കുറ്റപത്രം സമർപ്പിക്കാതിരുന്നതിനാലാണ് ഇരുവർക്കും സ്വാഭാവിക ജാമ്യം ലഭിച്ചത്

പെരിയ കേസ് കാസർകോട് പെരിയ ഇരട്ടക്കൊലക്കേബ്പിന്റെ കേസ് ഡയറി ഹാജരാക്കാൻ ഹൈക്കോടതി സംസ്ഥാന്ന് ഗവൺമെന്റിന് നിർദ്ദേശം നൽകി കുറ്റപത്രത്തിൽ പോരായ്മകൾ ഉണ്ടെന്ന് നിരീക്ഷിച്ച കോടതി കേസ് പരിഗ്ണിക്കുന്നത് തീങ്കളാഴ്ചത്തേയ്ക്ക് മാറ്റി കേസിൽ സിബിഐ അനേഷണം പ്രിതുടരു്ന്നതിന് ഹൈക്കോടതി സ്റ്റേ അനുവദിച്ചില്ല കൂടത്തായി കൂടത്തായി കൊലപാതക പരമ്പരയിലെ സിലി വധക്കേസിൽ ജോളിയുടെ ജാമ്യാപേക്ഷ താമരശ്ശേരി ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതി തള്ളി ജോളിയ്ക്ക് ജാമ്യം നൽകിയാൽ സാക്ഷികളെ സ്വാധീനിക്കാനും തെളിവുകൾ ഇല്ലാതാക്കാനും സാധ്യതയുണ്ടെന്ന് അസിസ്റ്റന്റ് പബ്ലിക് പ്രോസിക്യൂട്ടർ കോടതിയിൽ വാദിച്ചു അതേസമയം സിലിയുടെ മകൾ ആൽഫൈൻ മരിക്കാനിടയായ കേസിൽ ജോളിയെ നാലു ദിവസത്തേക്ക് പോലീസ് കസ്റ്റഡിയിൽ വിട്ടു

ഇടമലക്കുടി ഇൻട്രോ സംസ്ഥാനത്തെ ഏക ഗോത്രവർഗ്ഗ പഞ്ചായത്തായ ഇടുക്കി ഇടമലക്കുടിയുടെ ഗതാഗത പ്രശ്നത്തിന് പരിഹാരമായി ജീപ്പ് സർവ്വീസിന് തുടക്കം

തുലാവർഷവും ന്യൂനമർദ്ദ സ്വാധീനവും കാരണം സംസ്ഥാനത്ത് ഒറ്റപ്പെട്ടയിടങ്ങളിൽ അതിശക്തമായതോ ശക്തമായതോ ആയ മഴക്കുള്ള സാധൃതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിച്ചു ആലപ്പുഴ എറണാകുളം ഇടുക്കി ജില്ലകളിൽ നാളെ നാളെ അലർട്ട് ഉണ്ട് കേരള ലക്ഷദ്വീപ് തീരത്തിനിടയിൽ കട്ടൽ പ്പവരും മണിക്കൂറുകളിൽ കൂടുതൽ പ്രക്ഷുബ്ധമാകാൻ സാക്ട്രിത്യുണ്ടെന്നും കാലാവസ്ഥാ വിഭാഗം അറിയിച്ചു മത്സ്യത്തൊഴില്ലാളികൾ ഇന്ന് മുതൽ ഒരു കാരണവശാലും കേരള തീരത്തുക്കുകന്യാകുമാരി മാലദ്വീപ് ലക്ഷദ്വീപ് തീരത്തും മത്സ്യബന്ധനത്തിന്റ് പോകരുത് പോയവർ ഏറ്റവും അടുത്തുള്ള തീരത്ത് എത്രിയൂം വേഗം എത്തിച്ചേരേണ്ടതാണെന്നും കാലാവസ്ഥാ വിഭാഗം മുന്ന്റിയിപ്പ് നൽകി

വനഭൂമി കൈയ്യേറി ഇടുക്കിയിലെ പെരിഞ്ചാംകൂട്ടി തേക്ക് മുള പ്ലാന്റേഷൻ വനഭൂമിയിൽ ആദിവാസികൾ കൈയ്യേറി കുടിൽകെട്ടി താമസം ആംഭിച്ചു

മുമ്പ് ഇവിടെ നിന്നുംവനം വകുപ്പ് കുടിയിറക്കിയ ആദിവാസികുടുംബങ്ങളാണ് വീണ്ടും ഭൂമി കൈയേറിയത് മൂന്നാർ വട്ടവട മൂന്നാർ വട്ടവട കൊട്ടാക്കംമ്പൂരിലെ റിസോർട്ടിൽ നിശപാർട്ടിയിലേക്ക് മാരക ലഹരി വസ്തുക്കളെത്തിച്ച സംഭവത്തിൽ രണ്ട് യുവാക്കൾ പിടിയിൽ എറണാകുളം ഇടപള്ളി സ്വദേശികളായ അഫ്നസ് സാഹിൽഎന്നിവരാണ് പടിയിലായത്